ബി

റിപ്പോർട്ടിന് സ്ഥിരീകരണം

ഫ്രാൻസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ മക്രോൺ പറഞ്ഞു ഇന്ത്യയ്ക്കും ഫ്രാൻസിനും ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങളും ഒന്നരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഇരുനേതാക്കളും ചർച്ച ചെയ്തത്

ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നയതന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കൂറിച്ചു പാരീസ് നഗരപ്രാന്തത്തിലുള്ള ഷാറ്റെ ദെ ഷാന്റിലിയിലായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച

ഉദ്യോഗസ്ഥ ചർച്ചകൾക്കു പുറമെയാണ് ഇരുനേതാക്കളും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് തീവ്രവാദത്തെ ചെറുക്കുന്നതിനും ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയും ഫ്രാൻസും യോജിച്ചു സഹകരിക്കുമെന്ന് മക്രോണുമായി നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ ശ്രീ

അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെയും ഫ്രാൻസിലും ഇന്ത്യയിലും നടക്കുന്ന തീവ്രവാദ അക്രമങ്ങളെയും ഇരുനേതാക്കളും അപലപിച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിൽ എത്തിയ പ്രധാനമന്ത്രിയ്ക്ക് ഇന്നലെ ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ വെസ് കല ഡ്രിയാന്റെ നേതൃത്വത്തിൽ ആചാരപരമായ വരവേൽപ്പാണ് വിമാനത്താവളത്തിൽ നൽകിയത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡ്വാർഡ് ഫിലിപ്പുമായും ചർച്ച നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ ഇ യിലേക്ക് യാത്ര തിരിക്കും

എ ഇ യിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനുമായി സമഗ്രമായ ചർച്ചകൾ നടത്തും പ്രധാനമന്ത്രിയുടെ യു

തുടർന്ന് ബഹ്റിനിലേക്ക് പോകുന്ന അദ്ദേഹം രാജാവ് ഷെയ്ഖ് അഹമ്മദ് ബിൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിഫാ ബിൻസൽമാൻ എന്നിവരുമായി ചർച്ചു നടത്തും മനാമയിൽ നവീകരിച്ച കൃഷ്ണക്ഷേത്രവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

ഈ കാലയളവിൽ മൊത്തം വരുമാനം പൂർണ്ണമായും ആദായനികുതി രഹിതമാക്കുമെന്ന് കേന്ദ്രപ്രത്യക്ഷ നികുതിബോർഡ് വ്യക്തമാക്കി

സ്വകാര്യ ഇ കൊമേഴ്സ് സൈറ്റുകളുടെ മാതൃകയിൽ ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ സൈറ്റിലൂടെ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു

തീരുമാനം രാജ്യത്തെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് ഉത്തേജനം നൽകും തിരമാല സമുദ്രോപരിതലത്തിൽ നിന്നുള്ള താപം തുടങ്ങി വിവിധതരം സമുദ്രോർജ്ജം ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയെ പുനരൂപയോഗ ഊർജ്ജമായി പരിഗണിക്കുമെന്നാണ് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കുന്നത്

ചെറുകിട നികുതിദായകർക്ക് ആദായനികുതി വകുപ്പുമായുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി ആദായനികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് പുതിയ തുടക്കം കുറിക്കണമെന്ന് ഗവൺമെന്റ് നികുതിദായകരോട് ആവശ്യപ്പെട്ടു

വിവിധ സംഘടനകളുടെയും ക്ഷേത്രദേവസ്വങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണജീവിതവുമായി ബന്ധപ്പെട്ട നിശ്ചല ദൃശ്യങ്ങൾ പുരാണകഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞ് വരുന്ന കുട്ടികൾ കേരളീയ വേഷമണിഞ്ഞ് വരുന്ന ഭഗിനിമാർ ഭജനസംഘങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റ് കൂട്ടും

ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിനുശേഷം ഇതാദ്യമായാണ് പേടകം ചിത്രങ്ങൾ അയക്കുന്നത്

ദില്ലി റോസ് അവന്യൂവിലുള്ള പ്രത്യേക സിബിഐ കോടതിയാണ് അദ്ദേഹത്തെ ഇന്നലെ സിബിഐയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്

ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന ചിദംബരത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇക്കാര്യത്തിൽ എതിർവാദം ഉന്നയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല

നാല് ദിവസവും അരമണിക്കൂർ വീതം കുടുംബാംഗങ്ങൾക്കും അഭിഭാഷകർക്കും അദ്ദേഹത്തെ കാണാം

ബുധനാഴ്ച രാത്രിയിലാണ് ചിദംബരത്തെ ന്യൂഡൽഹിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും സി ബി ഐ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോകത്തിന് മുഴുവൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ പുസ്തകത്തിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു

തെക്ക് കിഴക്കൻ രാജ്യങ്ങളുടെ രാജ്യാന്തര സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില വികസിതരാജൃങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് സുഗമമായ വ്യാപാരം നടത്തുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

താക്കറെ ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു

മൂന്നു മണിക്കൂറിലധികമാണ് സിബിഐ സംഘം കൊൽക്കത്തയിൽ അദ്ദേഹത്തെ ചോദൃം ചെയ്തത് ഭട്ടാചാർജി സാംസ്കാരികവകുപ്പ് സെക്രട്ടറിയായിരുന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ ശാരദ ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള മാധ്യമത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് സിബിഐ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്

ഏലംകുളം വില്ലേജിലെ പാറക്കൽമുക്ക് പാതായ്ക്കര വില്ലേജിലെ മണ്ണേങ്കഴായ തോട്ടശേരി എന്നിവിടങ്ങളിലാണിത്

ബൌളിംഗ് പരിശീലകനായി ഭരത് അരുണും ഫീൽഡിംഗ് പരിശീലകനായി ആർ

ബാറ്റിംഗ് പരിശീലകനായി വരുന്ന റാത്തോഡ് ഇന്ത്യയ്ക്കായി ആറ് ടെസ്റ്റും ഏഴ് ഏകദിനവും കളിച്ചിട്ടുണ്ട്

അമേരിക്കയുടെ ബെയ്വെൻ ഷാങ്കിനെ പരാജയപ്പെടുത്തിയാണ് സിന്ധു അടുത്ത റൌണ്ടിലേക്ക് കടന്നത് പുരുഷവിഭാഗം സിംഗിൾസിൽ സായ് പ്രണീത് ലോക എട്ടാം നമ്പർ താരം അന്തോണി സിനിസുക്കയെ പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിൽ കടന്നു